സംസ്ഥാനങ്ങൾക്ക് അയ്യായിരും ്ക്കോടി രൂപ കൂടി നൽകി

അൻപത് വയസ് കഴിഞ്ഞിവർക്ക് രാജ്യത്ത് അടുത്തമാസം ന് മുതൽ കോവിഡ് വാക്സിൻ നൽകിത്തുടങ്ങും

എസ്

പരാജയപ്പെടുത്തി ബംഗളുരു എഫ്

ഈ പദ്ധതികൾ രാജ്യത്ത് ഊർജ്ജ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഉത്തേജനമാകുമെന്നാണ് വിലയിരുത്തൽ തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ പങ്കെടുക്കും

ഈ സവിശേഷത ഇന്ത്യയിൽ മാത്രമേ കാണാനാകു എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ റിപ്പബ്ധിക് ദിനത്തിൽ മികച്ച മാർച്ച് പാസ്റ്റ് നടത്തിയ സൈനിക വിഭാഗത്തിന് പുരസ്കാരം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് രാജ്യരക്ഷാമന്ത്രി നാനാത്വത്തിലെ ഏകത്വത്തെ കുറിച്ച് പരാമർശിച്ചത് സൈനൃത്തിന്റെയും കേന്ദ്ര പോലീസ് സേനയുടെയും പ്രവർത്തനങ്ങളെ ശ്രീ രാജ്നാഥ് സിംഗ് പ്രകീർത്തിച്ചു

അസം നിക്ഷേപ സൌഹൃദമാക്കാൻ മികച്ച അടിസ്ഥാന സൌകരൃങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്ന് ശ്രീ

ജപ്പാൻ സ്ഥാനപതി സതോഷി സുസുകിയുടെ അസം സന്ദർശനത്തെക്കുറിച്ച് പരാമർശിച്ച വിദേശകാര്യ മന്ത്രി ഇന്തൃയിലും പ്രത്യേകിച്ച് അസമിലും ഇന്തോ ജപ്പാൻ പങ്കാളിത്തം വികസനത്തിനു കാരണമാകുമെന്നും അഭിപ്രായപ്പെട്ടു രാജ്യം അഞ്ച് ട്രില്ല്യൻ സമ്പദ്വൃവസ്ഥയായി മാറുന്നതിന് വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് ജാപ്പനീസ് സ്ഥാനപതി സതോഷി സുസുകി വ്യക്തമാക്കി

ടി നഷ്ടപരിഹാരക്കുറവ്പ് നിക്ത്തുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരുണ്പ്പൂദേശങ്ങൾക്കുമുള്ള പ്രതിവാര ഗഡുവായ അയ്യായിരു കോടി രൂപ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൽകി

അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം നാഗാലാൻഡ് സിക്കിം എന്നിവിടങ്ങളിൽ ജി

ടി വരുമാനത്തിൽ കുറവ് വന്നിട്ടില്ലെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു

ആദ്യ ഘട്ടത്തിൽ ആരോഗ്യപ്രവർത്തകർക്കും രണ്ടാം ഘട്ടത്തിൽ മുന്നണി പോരാളികൾക്കുമാണ് കുത്തിവയ്പ് നൽകിയത്

അതിനിടെ ഇന്ത്യയുടെ വാക്സിൻ നയതന്ത്രത്തെ പ്രശംസിച്ച് ആഗോള മാധ്യമങ്ങൾ വാക്സിൻ മൈത്രി പദ്ധതിപ്രകാരമാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇന്ത്യ സുഹൃദ് രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്നത്

ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം ഒരു കോടി ആറുലക്ഷം പിന്നിട്ടു

ആന്ധ്രപ്രദേശിലെ കൂർനൂലിൽ ഉണ്ടായ റോഡപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും രണ്ട് ലക്ഷം രൂപ ലഭിക്കും

ഏഴ് പട്ടികജാതി വിഭാഗങ്ങളെ കൂടി ദേവേന്ദ്ര കുല വെളളാളർ സമുദായ പട്ടികയിൽ കൂട്ടിച്ചേർക്കുമെന്നും സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു ഈ സമുദായങ്ങളെയെല്ലാം തമിഴ്നാട്ടിലെ പട്ടികജാതി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുളള ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്

ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ആകെ കോവിഡ് മരണങ്ങളിൽ മൂന്നില്ലൊന്നു ശതമാനവും യൂറോപ്യൻ രാജ്യങ്ങളിലാണ്

എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തി ബംഗളുരു എഫ്

ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ബംഗളുരുവിന്റെ വിജയം

മഹാമാരിയുടെ ഈ ഘട്ടത്തിൽ ചടങ്ങുകളിൽ ജനപ്രാതിനിധ്യിപ്പു കുറവായിരിക്കും

എസ്

വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം ഉദ്യോഗാർത്ഥികൾക്ക് ഐകൃദാർഢൃവുമായി യുവമോർച്ച പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധം നടത്തും സമരത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നിരാഹാര സമരം ഇന്നും തുടരും